തിരുവനന്തപുരത്തെ രോഗ ബാധിതരിൽ ഇവർ രണ്ടു പേരും കുട്ടികളാണ് മെഡിക്കൽ കോളജിലെ എസ്

ടി ആശുപത്രിയിൽ ഐസൊലേഷനിൽ കഴിയുകയാണ്

രണ്ടു പേരാണ് സംസ്ഥാനത്ത് കോവിഡ് ബാധയിൽ മരണമടഞ്ഞത്

ദരദ കോട്ടയം ജില്ലയിൽ കോവിഡ് ബാധയുടെ പേരിൽ ഇന്നലെ ആരും നിരീക്ഷണത്തിൽ ആയില്ല ആർക്കും ഹോം ക്വാറന്റയിനുമില്ല

നിസാമുദ്ധീൻ മത സമ്മേളനത്തിൽ പങ്കെടുത്ത ആരു ജില്ലയിലെത്തിയതായി വിവരം ലഭിച്ചിട്ടില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ ജേക്കബ് വർഗീസ് അറിയിച്ചു

ഇവർ മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്

കൊല്ലത്ത് ആദ്യമായി കൊവിഡ് സ്ഥിരീകരിച്ച പ്രാക്കുളം സ്വദേശിയുടെ അടുത്ത ബന്ധുവായ സ്ത്രീക്ക് ഇന്നലെ അരോഗം സ്ഥിരീകരിച്ചു

കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഒരാളിൽ കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു

നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയ ഒരാൾക്കെതിരെ ശ്രീകൃഷ്ണപുരം പൊലീസ് കേസെടുത്തു

ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ച ഒമ്പതുപേരുടെയും ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണ് രുമ തലശ്ശേരി മലബാർ കാൻസർ സെന്ററിൽ കോവിഡ് പരിശോധന കേന്ദ്രം തുടങ്ങി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിലും അവർക്ക് ഭക്ഷണം തയാറാക്കുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകളിലും അതാത് ദിവസങ്ങളിലെ മെനു പ്രദർശിപ്പിക്കണമെന്ന് നിർദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു അതിഥി തൊഴിലാളികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും വിളിച്ചറിയിക്കാൻ ഹെൽപ് ഡെസ്ക് നമ്പറുകൾ എല്ലാ ക്യാംപുകളിലും പ്രദർശിപ്പിക്കുമെന്നു മന്ത്രി കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

പഞ്ചായത്തുതല ഡാറ്റയെടുത്ത് പെട്ടെന്നു തന്നെ ടെസ്റ്റിന് അയക്കും പനിയും ചുമയും ബാധിച്ചവരേയും അവരുമായി അടുത്ത് ഇടപഴകിയവരുടേയും പട്ടിക തയാറാക്കും കാസർകോട് മെഡിക്കൽ കോളജിൽ കോവിഡ് സെന്റർ പ്രവർത്തനം ഉടൻ തുടങ്ങും കേന്ദ്ര സർവകലാശാലയിൽ ടെസ്റ്റിങ്ങിന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിലിന്റെ അനുമതി ലഭിച്ചിട്ടുണ്ട് കാസർകോട്ടെ ആശുപത്രികളിലാണ് ഏറ്റവും കൂടുതൽ പേർ നിരീക്ഷണത്തിൽ കഴിയുന്നത്

നിസാമുദ്ധീനിലും മലേഷ്യയിലും നടന്ന മത സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയവരിലെ രോഗ ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട് ഇതിൽ പങ്കെടുത്തവരുടെ പട്ടിക ജില്ലാ കലക്ടർമാർക്ക് നൽകി ആവശ്യമായ മുൻകരുതൽ എടുത്തതായും മുഖ്യമന്ത്രി പറഞ്ഞു ദേദ ഏപ്രിൽ ഒന്നിന്റെ പേരിൽ കൊറോണ സംബന്ധിച്ച തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകി ഇത്തരത്തിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുത് കോവിഡ് പ്രതിരോധത്തിൽ ജാഗ്രത പുലർത്തി മറ്റു പരിഗണനകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അദ്ദേഹം നിർദേശിച്ചു റോഡിലെ തിരക്ക് നിയന്ത്രിക്കാൻ ആദ്യം വേണ്ടത് സ്വയം നിയന്ത്രണമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന അപകടത്തിന്റെ ഗൌരവം മനസിലാക്കി അനാവശ്യമായ പുറത്തിറങ്ങൽ ഒഴിവാക്കണം

ചെറിയ പാളിച്ചകൾ പോലും വലിയ വീഴ്ചയായി മാറാമെന്നും മുഖ്യമന്ത്രി ഓർമിപ്പിച്ചു രുമ ഏപ്രിൽ ഫൂൾ ദിനത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്ക് എതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് ഡിജിപി ലോക്നാഥ് ബഹ്റ അറിയിച്ചു ഇത്തരം സന്ദേശങ്ങൾ നിർമ്മിക്കുന്നവരെയും ഫോർവേഡ് ചെയ്യുന്നവരെയും അറസ്റ്റ് ചെയ്യുമെന്നും ഡിജിപി മുന്നറിയിപ്പ് നൽകി വ്യാജ സന്ദേശങ്ങൾ തയ്യാറാക്കുന്നവരെയും പ്രചരിപ്പിക്കുന്ന വരെയും കണ്ടെത്താൻ ഹൈടെക് ക്രൈം എൻക്വയറി സെൽ സൈബർഡോം സൈബർ പോലീസ് സ്റ്റേഷനുകൾ വിവിധ ജില്ലകളിലെ സൈബർ സെല്ലുകൾ എന്നിവയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

ബിശ്വാസ് മേത്തയ്ക്ക് നൽകി

പാലക്കാട് ജില്ലയിൽ നിന്ന് ഒമ്പത് പേർ ഇതിൽ പങ്കെടുത്തെന്നാണ് വിവരം

കൽപറ്റ സ്വദേശിയും മാനന്തവാടിയിലെ കച്ചവടക്കാരനായ കണ്ണൂർ സ്വദേശിയുമാണിവർ മാനന്തവാടിയിൽ വ്യാപാരിയായ മറ്റൊരാളും സമ്മേളനത്തിനും പോയിരുന്നതായി റിപ്പോർട്ടുണ്ട് രുര കോവിഡ് പശ്ചാത്തലത്തിൽ ആദായനികുതി ചരക്കു സേവന നികുതി എന്നിവയിൽ ഏർപ്പെടുത്തിയ ആശ്വാസ നടപടികൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിച്ചു നികുതി ബിനാമി നിയമങ്ങളിൽ വരുത്തിയ കാലവധി ദീർഘിപ്പിക്കലും നികുതിസംബന്ധമായ പുതുക്കിയ തിയതികളും ഉൾപ്പെടുത്തിയാണ് ഓർഡിനൻസ്

റേഷൻ കടകളിലെ തിരക്ക് ഒഴിവാക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു എല്ലാ ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ അന്ത്യോദയ മുൻഗണന വിഭാഗങ്ങൾക്കും ഉച്ചയ്ക്കു ശേഷം മുൻഗണനേതര വിഭാഗങ്ങൾക്കും റേഷൻ വിതരണം ചെയ്യും

തുടർ ദിവസങ്ങളിൽ മറ്റു രണ്ട് അക്കങ്ങളിൽ അവസാനിക്കുന്നവർക്കും റേഷൻ വിതരണം ചെയ്യും നിശ്ചിത ദിവസം എത്താനാകാത്തവർക്ക് മറ്റു ദിവസങ്ങളിൽ റേഷൻ വാങ്ങാൻ സൌകര്യം ഏർപ്പെടുത്തും

വിലകൂട്ടി സാധനങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വടക്കൻ ജില്ലകളിൽ സാധനങ്ങൾ എത്തിക്കാൻ മടിക്കുന്നവരെ ബോധവത്കരിക്കാനും സുരക്ഷാ മുൻകരുതലോടെ ക്രമീകരണം ഏർപ്പെടുത്താനും നിർദേശം നൽകിയിട്ടുണ്ട്

ട്രഷറികളിൽ എത്തുന്നവർ കൈകൾ അണുവിമുക്തമാക്കണം നിശ്ചിത അകലം പാലിച്ച് ക്യൂ നിൽക്കണമെന്നും നിർദ്ദേശമുണ്ട് രുദ ട്രഷറികളിലെ തിരക്ക് ഒഴിവാക്കാൻ എല്ലാ സർവീസ് പെൻഷനുകളും ഗവൺമെന്റ് നേരിട്ട് ഇടപാടുകാരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിക്ഷേപിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു

രുമ ഗുരുതരാവസ്ഥയിലായ രോഗികൾക്ക് മംഗളൂരുവിൽ ചികിത്സ ലഭ്യമാക്കുന്നതിന് കാസർകോട്ടെ അതിർത്തികൾ തുറക്കുന്ന കാര്യത്തിൽ കർണാടകം ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് അറിയിക്കും

രുമ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്നലെ മാത്രം അഞ്ചു കോടി ഒമ്പത് ലക്ഷം രൂപ ലഭിച്ചു ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ മൂന്ന് കോടി രൂപ നൽകി ഗവൺമെന്റ് സെക്രട്ടറിയേറ്റ് സ്റ്റാഫ് കോ ഓപറേറ്റീവ് സൊസൈറ്റിയും ഭീമ ജ്വല്ലേഴ്സും ഓരോ കോടി രൂപ നൽകി

രുമ അതിഥി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചതിന് ആലപ്പുഴയിൽ രണ്ട് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ഹരിപ്പാട് അതിഥി തെരുവിലിറക്കാൻ ശ്രമിച്ചതിന് ചിങ്ങോലി സ്വദേശി നാസറുദീനെ തിരേയും വ്യാജ സന്ദേശം നൽകി ഇതര സംസ്ഥാനക്കാരെ തെരുവിലിറക്കിയതിന് അമ്പലപ്പുഴയിൽ വാടകയ്ക്ക് താമസിക്കുന്ന യു

കോഴിക്കോട് ജില്ലയിൽ മൂന്നു മുതൽ നാലു ഡിഗ്രീ വരെ ചൂട് കൂടാൻ സാധ്യതയുണ്ട് തൃശൂർ ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ രണ്ടു മുതൽ മൂന്ന് ഡിഗ്രി വരേയും ചൂട് ഉയർന്നേക്കും രുദ പാലക്കാട് ജില്ലയിൽ താപനില ക്രമതീതതമായി ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത നിർദ്ദേശം നൽകി